ഏഴ് സുപ്രധാന മേഖലകളിൽ പരിഷ്കരണം

കപ്പൽ ഐ

എസ്ക് ജിൽാശ്വ കൊച്ചിയിലെത്തി പ്രവാസികളുമായി ന്ടുല് വിമാനങ്ങൾ ഇന്ന് കേരളത്തിലെത്തും

ന് നാലാം ഘട്ടത്തില്ലേക്കുള്ള മാർഗനിർദേശങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് ഇന്ന് ലോക്ഡൌൺ പൂർണം

ക്ഷേമപെൻഷനുകളും സർക്കാരിന്റെ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാത്തവർക്ക് ആയിരം രൂപ വീതം അടുത്തയാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി തോമസ് ഐസക്

ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം

ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിലുറപ്പ് വാണിജ്യം കമ്പനി നിയമങ്ങൾ പൊതുമേഖല സംസ്ഥാനങ്ങളുടെ വരുമാനം എന്നീ മേഖലകളിൽ കൂടുതൽ പരിഷ്കരണം

ക് ഇന്റർനെറ്റ് സൌകര്യം ഇല്ലാത്തവർക്ക് ചാനലുകൾ വഴി റ്റ്രീദ്യർഭ്യാസ പരിപാടികൾ ലഭ്യമാക്കും

ദീക്ഷ എന്ന പേരിൽ ഓൺലൈൻ പഠന പദ്ധതി ആവിഷ്കരിക്കും

കോവിഡിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭകർ എടുത്ത വായ്പകളിൻ മേലുള്ള ബാങ്ക് നടപടികൾ ഒരു വർഷത്തേക്ക് നിർത്തി വയ്ക്കും

എല്ലാ ജില്ലകളിലും ആശുപത്രികളോട് ചേർന്ന് പകർച്ചവ്യാധി പ്രതിരോധ ബ്ലോക്കുകൾ സ്ഥാപിക്കും

ഇതു കൂടാതെ കമ്പനികളുടെ സാങ്കേതിക പിഴവ് ഇനി മുതൽ ക്രിമിനൽ കുറ്റമാവില്ല ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് നടപടിയെന്ന് ധനമന്ത്രി നിർമല സീതാരാമൻ അറിയിച്ചു ക്ഷകകകകക സമുദ്രസേതു സമുദ്രസേതു പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി മാലദ്വീപിൽ നിന്നുള്ള ഇന്ത്യക്കാരുമായി നാവികസേന കപ്പൽ ഐ

എസ് ജലാശ്വ കൊച്ചിയിലെത്തി

യാത്രക്കാരുടെ വൈദ്യപരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ കൊച്ചി തുറമുഖത്ത് നടക്കുകയാണ്

രണ്ടാം ഘട്ടത്തിൽ ദുബായ് അബുദാബി ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നും ഇന്ന് നാല് വിമാനങ്ങൾ കേരളത്തിൽ എത്തും ഇതിൽ മൂന്നെണ്ണവും കൊച്ചിയിലേക്കാണ്

കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ദുബായിൽ നിന്നുള്ള ആദ്യവിമാനം കണ്ണൂരിൽ എത്തിയത് വന്ദേ ഭാരത് മിഷൻ പ്രകാരം കുവൈറ്റ് ദോഹ മസ്കറ്റ് അബുദാബി എന്നിവിടങ്ങളിൽ നിന്ന് പ്രവാസികളുമായുള്ള ഫ്ളൈറ്റുകൾ വരും ദിവസങ്ങളിൽ കണ്ണൂരിലെത്തുന്നുണ്ട്

ഇത് പിന്നീട് രണ്ടുതവണ ദീർഘിപ്പിക്കുകയായിരുന്നു

ചരക്ക് നീക്കം ആരോഗൃമേഖല അടിയന്തിര സർക്കാർ ഡ്യൂട്ടി മാധ്യമങ്ങൾ പാൽ പത്രവിതരണം മറ്റ് അത്യാവശ്യ സർവീസുകൾ എന്നിവയ്ക്ക് മാത്രം യാത്രാനുമതി

ഒരു ദിവസത്തെ ഏറ്റവും വലിയ വർധനയാണിത്

പൂപ് കേന്ദ്ര ധനമന്ത്രി പ്രഖ്യാപിച്ച പാക്കേജിൽ കോർപറേറ്റുകളെ സഹായിക്കുന്ന നടപടികൾക്കും സ്വകാര്യവത്ക്കരണത്തിനുമാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നതെന്ന് ധനമന്ത്രി തോമസ് ഐസക് അഭിപ്രായപ്പെട്ടു

മു കേരളം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ വേനൽമഴ അഞ്ച് ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ക്കാ നിരീക്ഷണ കേന്ദ്രം

മീ വരെ ആകാൻ സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപ്പിട്ടുത്ത്ക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്

മൂലമറ്റം പവർ ഹൌസിൽ നിന്നുള്ള വെള്ളമൊഴുക്ക് കൂടാതെ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലുള്ള പുഴകളിലും തോടുകളിലും നീരൊഴുക്ക് കൂടിയിട്ടുണ്ട് ഇതു മൂലം ഡാമിലെ ജലനിരപ്പ് നിലവിലേതിൽ നിന്നും ഉയർന്നാൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു മൂവാറ്റുപുഴയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് അതിഥി തൊഴിലാളികൾ അതിഥി തൊഴിലാളികളുടെ അന്തർസംസ്ഥാന യാത്ര സംബന്ധിച്ച വിവരശേഖരണത്തിനും ഏകോപനത്തിനും ഓൺലൈൻ പോർട്ടൽ ഉപയ്യോഗിക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദേശം നിൽകി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വിക്ട്സിപ്പിച്ച നാഷണൽ മൈഗ്രന്റ് ഇൻഫർമേഷൻ സിസ്റ്റമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്

നാളെ രാത്രിയോടെ ട്രെയിൻ ജയ്പൂരിലെത്തും ഇതുവരെ ജില്ലയിൽ നിന്ന് സ്വദേശത്തേക്ക് മടങ്ങിയത് ട്രെയിൻ ആലപ്പുഴ ട്രെയിനുകൾക്ക് വൈകാതെ ആലപ്പുഴയിൽ സ്റ്റോപ്പ് അനുവദിക്കുമെന്ന അറിയിപ്പ് ലഭിച്ചതിനെത്തുടർന്ന് യാത്രക്കാരെ പരിശോധിക്കുന്നതിനും നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുന്നതിനുമുള്ള ഒരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചു ജില്ല കളക്ടർ സ്റ്റേഷനിലെത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തി യാത്രക്കാരെ തെർമോസ്കാനർ ഉൾപ്പടെ ഉപയോഗിച്ച് പരിശോധിച്ച ശേഷം ശാരീരിക അകലം പാലിച്ച് ബസ്സുകളിൽ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് സജ്ജമാക്കുന്നത്

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിത പ്പെടുത്തുന്നതിനും ഗവ ഓഫീസുകളിലെ പ്രവർത്തനം സുഗമമാക്കുന്നതിനുമായി ജീവനക്കാരെ എത്തിക്കാൻ കണ്ണൂരിൽ നാളെ കെ എസ് ആർ ടി സി

ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ജില്ലാ ആസ്ഥാനത്തേക്കും തിരിച്ചുമാണ് സർവ്വീസ് സാധാരണ നിരക്കിന്റെ ഇരട്ടിയായിരിക്കും യാത്രാ ചാർജ്ജ്

കുഞ്ഞിന്റെ അമ്മയെയും പ്രേരണ കുറ്റത്തിന് കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു